അതിശക്തമായ മഴ

അഞ്ച് പേർക്ക് രോഗമുക്തി

എസ് എൽ

പൂർണമായും കരയിൽ തൊടാൻ നാല് മണിക്കൂറ്റോളം എടുക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണി കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ പശ്ചിമബംഗാൾ ഒഡ്വീഷ്ട് സംസ്ഥാനങ്ങളിലെ തീരങ്ങളിൽ അതിശക്തമായ മഴയ്ടൂണ്ട് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്

സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും കാറ്റ് പൂർണമായും തീരം തൊടുന്നമുറയ്ക്ക് ഏത് തരത്തിലുള്ള അനിഷ്ഠ സംഭവങ്ങളെയും നേരിടാൻ സേന സുസജ്ജമാണെന്നും അദ്ദേഹം അറിയിച്ചു

ഇതുകൂടാതെ രണ്ട് ടീമുകളെ കരുതൽ നടപടിയെന്ന നിലയ്ക്ക് വിന്യസിച്ചിട്ടുണ്ട് എല്ലാ സംഘങ്ങൾക്കും വയർലെസ് സാറ്റലൈറ്റ് വാർത്താവിനിമയ സംവിധാനം നൽകിയതായും അദ്ദേഹം പറഞ്ഞൂ പാനി ചൂഴലിക്കാറ്റിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എല്ലാ ടീമുകൾക്കും ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സർവ്വീസ് ആരംഭിക്കുന്നതിനായി സജ്ജമാകാൻ എല്ലാ വിമാനത്താവളങ്ങളെയും അറിയിച്ചിട്ടുണ്ട് യാത്രക്കാർ ക്കുള്ള നിർദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു

വിശദാംശങ്ങളുമായി അരവിന്ദ്

എൽ

പരീക്ഷ നടത്താൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു